സംരക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഫ്രാൻസിൽ നിന്നും ആദ്യൂ റ്റ്ഫേൽ പോർവിമാനം രാജ്യരക്ഷാമന്ത്രി ന് രാജ്നാഥ് സിംഗ് ഏറ്റുവ്വാങ്ങി

അടിച്ചമർത്തൽ അവസാനിപ്പിക്കാത്ത പക്ഷം ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ നൽകുന്നത് നിർത്തിവയ്ക്കുമെന്ന് അമേരിക്ക

ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം

ദസറ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽക്ടുണ്ടും അവരുടെ വ്യക്തിത്വത്തെ മാനിക്കണമെന്നും പ്രധാനമിന്റി പ്റഞ്ഞു നമ്മുടെ പെൺകുട്ടികൾ നാടിനും വീടിനും വെളിച്ച്മാീയി മാറട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു

തിന്മയ്ക്കെതിരെ നന്മ് നേട്ടുന്ന വിജയത്തിന്റെ പ്രതീകമായി പ്രത്യേക പൂജയിലും പ്രധാനമത്രി പ്ങ്കെടുത്തു ഇന്ത്യ നിരവധി ഉത്സവങ്ങളുടെ നാടാണെന്നും ്സ്മൂഹത്തെ ഒന്നിക്കാൻ എല്ലാ ഉത്സവങ്ങളും കാരണമകുന്നുണ്ടെന്നും പ്രിധ്നാന്മന്ത്രി പറഞ്ഞു

ഐക്യരാഷ്ട്രസഭയിൽ സ്വീകരിച്ച മുൻ നിലപാട് തിരുത്തിയാണ് ചൈനീസ് വക്താവിന്റെ പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സന്ദർശനത്തിനു ശേഷമാണ് ചൈന പാകിസ്ഥാന് അനുകൂലമായ പ്രസ്താവന നടത്തിയത്

എൻ രക്ഷാസമിതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് സമാധാനപരമായി പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ആദ്യം ചൈന നിലപാട് സ്വീകരിച്ചത് ഇന്നലെയാണ് ഇമ്രാൻഖാൻ ചൈനയിലെത്തിയത് ആഗസ്റ്റിൽ ചൈന സന്ദർശിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും കശ്മീരിൽ പ്രത്യേകാധികാരം നീക്കിയ വിഷയം ഉന്നയിച്ചിരുന്നു വിഷയം പരിഹരിക്കാൻ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് വെള്ളിയാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങ് ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ചൈനയുടെ നിലപാട് മാറ്റം

ഫ്രാൻസിലെ മെറിഗ്നാകിൽ ദസോർട്ട് കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വച്ചാണ് വിമാനം ഏറ്റുവാങ്ങിയത്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 ഏറ്റുവാങ്ങിയ വിമാനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് ലഘുയാത്രയും നടത്തി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 സൈനിക കാര്യങ്ങൾക്കുള്ള ഫ്രഞ്ച് മന്ത്രി ഫ്ളോറൻസ് പൂർലി ഇന്ത്യൻ വ്യോമസേന ഉപമേധാവി ഹർജിദ്സിംഗ് അറോറ ദസോർട്ട് ഏർച്ചിയേഷൻ സി ഇ

മേക്ക് ഇൻ ഇന്ത്യൂ പദ്ചൂതിക്ക് മികച്ച പിന്തുണ നൽകുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന് രാജ്യരക്ഷാ ്മന്ത്രി നന്ദി അറിയിച്ചു

ഗാസിയാബാദിൽ ഹിന്ദാനിലെ വ്യോമസേന താവളത്തിൽ വലിയ ആഘോഷങ്ങളാണ് ഒരുക്കിയിരുന്നത് വിവിധവിമാനങ്ങൾ പങ്കെടുത്ത അഭ്യാസ പ്രകടനമായിരുന്നു മുഖ്യാകർഷണം

വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനും അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തു എന്ത് വില കൊടുത്തും രാജ്യത്തിന്റെ ആകാശ അതിർത്തികൾ സംരക്ഷിക്കുമെന്ന് ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർചീഫ്മാർഷൽ രാകേഷ്കുമാർസിംഗ് ബദൌരിയ പറഞ്ഞു

അയൽരാജ്യങ്ങൾ ആയാലും ഏറെ വൃത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതിനാൽ അവ ചർച്ചകളിലൂടെയും കൂടിക്കാഴ്ചയിലൂടെയും പരിഹരിക്കണമെന്നും ചൈനീസ് സ്ഥാനപതി പറഞ്ഞു വികസിച്ചുവരുന്ന രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ എന്ന നിലയിൽ അതിർത്തിക്കപ്പുറത്തേക്ക് വികസന ഉഭയകക്ഷി ബന്ധങ്ങൾ വളരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന് വർഷങ്ങളുടെ ചരിത്രമുണ്ടെന്നും അദ്ദേഹം ചുണ്ടിക്കാട്ടി

ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ഉഭയകക്ഷ്ടി നിക്ഷേപ സഹകരണത്തിൽ നിർണ്ണായകപാതയാണ് എണ്ണ ശുദ്ധീകരണ ശ്മാലിയിലൂടെ തുറക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

മുംബൈ ശിവജി പാർക്കിൽ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് മഹാരാഷ്ട്ര നിയമസഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ

യുമായി സീറ്റുധാരണയിൽ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

ശിവസേനാ സഖ്യം വേർപിരിഞ്ഞ സമയത്ത് കോൺഗ്രസ് എൻ സി

നിലവിലെ ധാരണയനുസരിച്ച് ബി ജെ

കാബൂളിലെ ഹെൽമന്ദ് പ്രവിശ്യയിൽ നടത്തിയ ആക്രമണത്തിലാണ് അസിം കൊല്ലപ്പെട്ടത്

അൽ കയ്ദയുടെ സുപ്രധാന നേതാക്കളും അസിം ഉമറിനൊപ്പം കൊല്ലപ്പെട്ടു

ഷി ജിയാങ്ങിനെക്കുറിച്ച് ചൈനയുടെ പ്രചാരണം നിർത്തണമെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു നാളെ മുതൽ യു എസ് ചൈന വ്യാപാര ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് പോംപിയോയുടെ പ്രസ്താവന

പരിശീലനത്തിനിടെ പാദത്തിനേറ്റ പരിക്കാണ് സ്മൃതി പുറത്താകാൻ കാരണം പകരം ഓൾറൌണ്ടർ പൂജാ വസ്ത്രീക്ക്ൾട്ടീമിൽ ഇടം നേടി

വിശദാംശങ്ങളുമായി നന്ദകുമാർ

ഭൌതിക പ്രപഞ്ചശാസ്ത്രത്തെ കുറിച്ചുള്ള വിവിധ കണ്ടെത്തലുകൾക്ക് ഗവേഷകരായ ജെയിംസ് പീബിൾസ് മിഷേൽ മേയർ ദിദിയർ ക്വിലോസ് എന്നിവർക്ക് നോബൽ പുരസ്കാരം ഭൌതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജെയിംസ് പീബിൾസിന് നോബൽ സമ്മാനം ലഭിച്ചത്

സൌരയൂഥത്തിന് പുറത്ത് സൂര്യനെപ്പോലെ പ്രഭാവമുള്ള മറ്റൊരു ഗ്രഹത്തെക്കുറിച്ചുള്ള കണ്ടുപിടിത്തത്തിനാണ് മിഷേൽ മേയർക്കും ദ്വിദിയർ ക്വിലോസിനും പുരസ്കാരം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രകൃതിവിഭവങ്ങളുടെ മൂല്യവും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെയും കുറിച്ച് ബോധവത്കരിക്കുകയാണ് വനസംരക്ഷണത്തിൽ ഏറെ പ്രധാനമെന്നും ഗവർണർ പറഞ്ഞു സംസ്ക്കാന വനം വന്യജീവിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വന്യജീപ്പിപ്പാരാഘോഷത്തിന്റെ സമാപനസമ്മേളനം ഇന്നലെ വൈകിട്ട് ള്ദ്ദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല്കൃഷ്ണൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

ഇത്തരത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു